ഘട്ടത്തിൽ ദൌതൃത്തിലെ ഏറ്റവും സുപ്രധാന ഘട്ടത്തിൽ ഇന്ന് ഓർബിറ്ററും ലാൻഡർ വിക്രമും വേർപെടും

അന്താരാഷ്ട്ര സമ്മേളനത്തിന് ഇന്ന് ഗ്രേറ്റർ നോയിഡയിൽ തുടക്കമാകും

ഓണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം

കിങ്സ്റ്റൺ ടെസ്റ്റിൽ പിടിമുറുക്കി ഇന്ത്യ

ദൌത്യത്തിലെ ഏറ്റവും സുപ്രധാന ഘട്ടത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ഓർബിറ്ററും ലാൻഡർ വിക്രമും വേർപെടും

ആർ

ചന്ദ്രനെ ചുറ്റുന്ന ഓർബിറ്ററും ചന്ദ്രനിൽ ഇറങ്ങുന്ന ലാൻഡറും എന്ന രീതിയിലാണ് പ്പേടകം വേർപെടുക

ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലെ മാൻസിനസ് സി സിംപ്തിയസ് എൻ ഗർത്തങ്ങളുടെ ഇടയിലാണ് വിക്രം ലാൻഡർ ഇറങ്ങുക

പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതുവരെ നിലവിലുള്ള എല്ലാ അവകാശങ്ങളും അവർക്ക് തുടരുമെന്ന് വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ വ്യക്തമാക്കി രജിസ്റ്ററിൽ ഉൾപ്പെടാത്തവർ വിദേശികളാണെന്ന് അർത്ഥമില്ല ഇവർക്ക് എല്ലാ നിയമസഹായവും അസം ഗവൺമെന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

സി പി അദ്ധ്യക്ഷൻ ശരത്പവാറും നിലപാട് വൃക്തമാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ മഹാജനാദേശ് യാത്രയുടെ ഭാഗമായി റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി നീക്കിയതിന് ശേഷം തെരഞ്ഞെടുപ്പ് നേരിടുന്ന ് ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയായിരിക്കുമെന്നും ശ്രീ

മരുവൽക്കരണത്തെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക മരുവൽക്കരണം തടയുന്ന നടപടികൾക്ക് നേതൃത്വം നൽകാൻ ഇന്ത്യയ്ക്കാകുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു ഇക്കാര്യത്തിലുള്ള ഇന്ത്യയുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ലോകത്തിന് മുന്നിൽ ഈ വിഷയം ശരിയായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുമെന്നും ശ്രീ

മരുവൽക്കരണം മൂലം വിവിധ രാജ്യങ്ങളിൽ വരൾച്ച രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇതിനെതിരെ ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നത് ഈ വിഷയത്തിൽ നിർണ്ണായകമായ തീരുമാനങ്ങളും യോഗത്തിലുണ്ടാകുമെന്നാണ് സൂചന മൂവായിരത്തിലധികം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്

ചെറുകിട വൃവസായ വികസന ഇൻസ്റ്റിറ്റ്യൂട്ടും സ്വയം ഫൌണ്ടേഷനും ചേർന്ന് നാഗ്പൂരിൽ സംഘടിപ്പിച്ച സ്വയം തൊഴിൽ സംരംഭകത്വമേളയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്

റിട്ടേൺ സമർപ്പിച്ചവീരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നാല് ശതമാന്ന്ർ വർധനയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്

ഇ ഫയലിംഗിൽ ഒറ്റ ദിവസം കൊണ്ട് റെക്കോർഡ് സൃഷ്ടിച്ചതീയും കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് വ്യക്തമാക്കി

അതിർത്തി ജില്ലയായ പൂഞ്ചിൽ യാതൊരു പ്രകോപനവുമില്ലാതെ പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിക്കുകയായിരുന്നു ഇന്ത്യൻ പോസ്റ്റുകളെയും ജനവാസ കേന്ദ്രങ്ങളെയുമാണ് അവർ ലക്ഷ്യമിട്ടത് നേരത്തെ മേഖലയിൽ പാകിസ്താൻ മോർട്ടാർ ആക്രമണം നടത്തിയതായി സൈനിക വക്താവ് വ്യക്തമാക്കി

അറിവിന്റെയും സമൃദ്ധിയുടെയും സൌഭാഗൃത്തിന്റെയും പ്രതീകമായ ഭഗവാൻ ഗണപതിയുടെ ജന്മദിനമാണ് ഇന്ന് പത്ത് ദിവസം നീണ്ട് നിൽക്കുന്ന ആഘോഷത്തിൽ വിശ്വാസികൾ വീടുകളിൽ ഗണേശ വിഗ്രഹങ്ങളുണ്ടാക്കി ആരാധിക്കുന്നു മഹാരാഷ്ട്രയിലെ പ്രധാന ആകർഷണമാണ് വിനായക ചതുർത്ഥി

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും ജനങ്ങൾക്ക് വിനായക ചതുർത്ഥി ആശംസകൾ നേർന്നു കേരളത്തിലെ വിനായക ക്ഷേത്രങ്ങളിലും വിപുലമായ ആഘോഷങ്ങളും പൂജകളും നടന്നു വരുന്നു

ജി എച്ച്

ഭവന്റെ ഉദ്ഘാടനവും അദ്ദേഹം ന്യൂഡൽഹിയിൽ നിർവഹിച്ചു

ചരിത്ര പ്രസിദ്ധമായ അത്തം ഘോഷയാത്രയ്ക്ക് തൃപ്പൂണിത്തുറ രാജനഗരി ഒരുങ്ങി ഇന്ന് തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര മന്ത്രി എ

ബാലൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ ഓണാഘോഷത്തിന് അത്തച്ചമയ ഘോഷയാത്രയോടെയാണ് തുടക്കം കുറിക്കുക നാടൻ കലാരൂപങ്ങളും വാദ്യാഘോഷങ്ങളും അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് മാറ്റു കൂട്ടും മുൻകാലങ്ങളിൽ കൊച്ചി രാജാവ് പങ്കെടുത്തിരുന്ന അത്തച്ചമയത്തിന്റെ സ്മരണകൾ ഉണർത്തുന്നതാണ് അത്തം ഘോഷയാത്ര പരിപാടികൾ ഒരാഴ്ച നീണ്ടു നിൽക്കും

തൃപ്പൂണിത്തുറ നഗര സഭയാണ് അത്തച്ചമയാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്

എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേക പത്രിക സമർപ്പിച്ചിരുന്നു

എ സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും

എം തോമസ് ഐസക് ഇതിനായി പ്രത്യേക കമ്പനി തന്നെ രൂപീകരിച്ചതായും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു

അജിൻകൃ രഹാനെയും ഹനുമ വിഹാരിയും അർദ്ധ സെഞ്ചറി തികച്ചതിന് പിന്നാലെ ഇന്ത്യ ഇന്നിംഗ്സ് ഡിക്ളയർ ചെയ്യുകയായിരുന്നു

ജർമനിയിലെ ബെർല്ലിനിൽ നടന്ന മീറ്റിൽ വെള്ളിമെഡൽ നേടിയാണ് ജിൻസൺ സ്വന്തം പേരിലുള്ള ദേശീയ റെക്കോഡ് പുതുക്കിയത്

എസ് ഓപ്പണിൽ സെറീന വില്യംസും റോജർ ഫെഡററും ക്വാർട്ടറിൽ ക്രൊയേഷ്യൻ താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സെറീനയുടെ വിജയം ഡേവിഡ് ഗൊഫിനെ പരാജയപ്പെടുത്തിയാണ് റോജർ ഫെഡറർ കാർട്ടറിൽ കടന്നത്